നിക്ഷേപങ്ങൾക്ക് നിയ്യ്ത്ത്രണം ഏർപ്പെടുത്തുന്ന ബിൽ പാർലമെന്റ് പ്ലാസാക്കി

തുടർന്ന് ധനവിനിയോഗബില്ലും നിയമസഭ പാസാക്കി

സ്പീക്കർ കൃഷ്ണ റെഡ്സിക്ക് അദ്ദേഹം രാജി ജനതാത്പര്യത്തിലൂന്നി ഭരണം കാഴ്ചവെയ്ക്കുന്നതിനായി പ്രതിപക്ഷം സഹകരിക്കണമെന്ന് ശ്രീ യെദ്യൂരപ്പ ആവശ്യപ്പെട്ടു

ലോക്സഭ നേരത്തെ ഈ ബില്ലിന് അംഗീകാരം നല്കിയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

രാജ്യത്തെ നിക്ഷേപ്പ സൌഹൃദമായ പരിതസ്ഥിതികൾ പ്രയോജനപ്പെടുത്താൻ ീസാധാരണക്കാർക്കും ഇനി കഴിയുമെന്ന് ബില്ലിന്റെ ചർച്ചയ്ക്കിടെ കേന്ദ്രസഹമന്ത്രി അനുരാഗ് താക്കൂർ പറഞ്ഞു പാവപ്പെട്ടവർ കഠിനാദ്ധാനത്തിലൂടെ സമ്പാദിച്ച വരുമാനം ചൂഷണം ചെയ്യുന്നത് തടയാൻ ബില്ലിലെ വ്യവസ്ഥകൾ സഹായകരമാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു നിക്ഷേപകരുടെ പലിശയിലും വ്യാപാരികളുടെ സഹകരണ ഇടപാടുകളിലും കൂടുതൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്തി ഉയർന്ന പലിശ വാഗ്ധാനം ചെയ്യുന്ന സ്വകാര്യ ഇടപാടുകാരുടെ തട്ടിപ്പിന് തടയിടാൻ ഈ നിയമത്തിന് കഴിയുമെന്ന് ധനമന്ത്രാലയം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ന്യൂസ് ഡസ്ക് ആകാശവാണി

ലോകത്ത് കടുവകളുടെ ഏറ്റവും സുരക്ഷിതമായ താവളമാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഇരട്ടിയാകുന്നത് രാജ്യത്തിന് നേട്ടമാകുമെന്നും ശ്രീ മോദി പറഞ്ഞു ജനങ്ങൾക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഒരുക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കടുവാ സംരക്ഷണത്തിന് സത്യമംഗലം കടുവാ സംരക്ഷണ മേഖലയ്ക്ക് പ്രധാനമന്ത്രി അവാർഡ് സമ്മാനിച്ചു

പീഡനത്തിനിരയായ സ്ത്രീ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടതാണോ അതോ മനപൂർവ്വം അപകടം വരുത്തിയതാണോ എന്ന കാര്യം ഫോറൻസിക് വിദഗ്ധൻ അന്വേഷിച്ച് വരികയാണ്

ഉന്നാവോ കേസിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കഴിഞ്ഞവർഷം ബലാത്സംഗം ചെയ്ത് കുറ്റത്തിന് ബിജെപി എം എൽ എ കുൽദീപ് സിംഗ് സെൻഗാർ ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിയ്ക്കുകയാണ് സംഭവവുമായി ബന്ധപ്പെട്ട് ബി ജെ പി എം

പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അമ്മ ഉൾപ്പെടെ രണ്ട് പേരാണ് വാഹനാപകടത്തിൽ കൃമ്രിച്ചത് പെൺകുട്ടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്

കഴിഞ്ഞ ദിവസമുണ്ടായ അപകടം നിർഭാഗ്യകരമാണെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ രേഖ ശർമ്മ വ്യക്തമാക്കി

അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും കമ്മീഷനെ അറിയിക്കാനും ഉത്തർപ്രദേശ് ഡിജിപി ഒ

എസ് ആർ

സെപ്റ്റംബർ ഏഴിനാണ് പേടകം ലാഡർ ചന്ദ്രനിൽ ഇറങ്ങുക

ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്കും ജനവാസ കേന്ദ്രത്തിനും നേരെ പാക് സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർക്കുകയായിരുന്നു

ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു കഴിഞ്ഞ ദിവസംപാക് സേനയുടെ വെടിവെയ്പ്പിൽ പരിക്കേറ്റ പത്തു ദിവസം പ്രായമുള്ള കുഞ്ഞ് ഇന്ന് മരിച്ചു

വെടിവെയ്പിനെ തുടർന്ന് സ്ത്രീയുടെ മൃതദ്ദേഹ്ത്തോടൊപ്പം വെടിക്കോപ്പുകളും ആയുധങ്ങളും പൊലീസ്റ് കണ്ടെത്തി

ഇതിനെ ചോദ്യം ചെയ്താണ് ഇവർ പരമോന്നത കോടതിയെ സമീപിച്ചത്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗൊയ്യുടെ നേതൃത്വത്തിലുള്ള ബഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

രാഷ്ട്രീയപാർട്ടികളിൽ പ്രാഗ്രവാദിത്തമുള്ള പദവികൾ വഹിക്കുന്നവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് പരിശോധന നടന്നത്

ഉടമസ്ഥരിൽ ഒരാൾ കരീബിയൻ ദ്വീപിന്റെ പൌരത്വം നേടാൻ ശ്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ തുടർന്നായിരുന്നു ആദായനികുതി വകുപ്പിന്റെ പരിശോധന

സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് കുൽദീപ് ബിഷ്ണോയിയുടെ വസതിയിലും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി

തീരുമാനം മോട്ടോർ വാഹന മേഖലയ്ക്ക് ഉണർവേകുമെന്നും മേക് ഇൻ ഇൻഡ്യാ പദ്ധതിക്ക് പ്രചോദനമേകുമെന്നും നിതി ആയോഗ്സ്റ്റിഇ

ടി കൌൺസിൽ തീരുമാനിച്ചിരുന്നു

രാഷ്ട്രീയനേതാക്കൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു ഹിന്ദുമതാചാര പ്രകാരം ഹുസൈൻ സാഗർ തീരത്ത് പി

പരിശോധനയ്ക്ക് വിധേയനാകണമെന്ന് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടു പരിശോധന ഫലം മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു കേസിലെ എഫ് ഐ

റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബിനോയ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം

കഴിഞ്ഞ മാസം അവസാനം റിസർവ്വ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതിനെ തുടർന്നാണ് എസ് ബി ഐ യുടെ നടപടി